റഫാൽ ഇടപാടും യു

ബി ഐ റെയ്ഡും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി ഇരുസഭകളും പലതവണ നിർത്തി വച്ചു

സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്തൃയ്ക്ക് ചരിത്ര നേട്ടം പരമ്പര ഇന്ത്യയ്ക്ക്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്ന് വാർത്താ ഏജൻസിയായ യു എൻ

എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് സംവരണത്തിന് ആർഹതയുള്ളത് ഇവർക്ക് കേന്ദ്രഗവൺമെന്റ് ജോലികളിലും വൃദ്യൂട്ട്ടൂർസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണമാണ് ലൂട്ടിക്കുക ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ബിൽ ന്മാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും

പ്രതിപക്ഷ ബഹളം കാരണം നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ ലോകസഭയും രാജ്യസഭയും പല തവണ മാറ്റിവെയ്ക്കേണ്ടിവന്നു സഭാധ്യക്ഷൻമാർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരു സഭകളും നേരത്തെ പിരിച്ചു വിടുകയായിരുന്നു

ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ ഭരണകാലത്തെ മണൽഖനനം സംബന്ധിച്ച സി ബി

രാവിലെ സഭ ചേർന്നപ്പോൾ തന്നെ സ്റ്റീബി

ബില്ലുകൾ പരിഗണിച്ചശേഷം പാർട്ടി പ്രതിനിധി രാംഗോപാൽ വർമയെ സംസാരിക്കാൻ അനുവദിക്കാമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ഹരിവംശ് അറിയിച്ചെങ്കിലും സമാജ്വാദി അംഗങ്ങൾ വഴങ്ങിയില്ല സമാജ്വാദി അംഗങ്ങൾ ബഹളം തുടരുന്നതിനിടെ നിയമനിർമ്മാണം പൂർത്തിയാക്കി അധ്യക്ഷൻ സഭ ഇന്നത്തേയ്ക്ക് പിരിച്ചുവിട്ടു സഭയിലെ മാന്യമല്ലാത്ത പെരുമാറ്റം കാരണം രാവിലെ മൂന്ന് അണ്ണാ ഡി

കെ അംഗങ്ങളേയും ഒരു ടി

പിയേയും സ്പീക്കർ സുമിത്രാ മഹാജൻ സസ്പെൻഡ് ചെയ്തിരുന്നു

പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രനിയമമന്ത്രി ജസ്റ്റിസ് പി

രാജ്യത്തെ കുഷ്ഠരോഗബാധിതരുടെ അവകാശങ്ങൾ ഉറപ്പു വരുത്തുന്നതാണ് ബിൽ

ലോക്സഭയിൽ മറുപടി പ്ലൂറയ്വെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമലാ സീതാരാമനാണ് ഗ്രവൺമെന്റ് നിലപാട് വൃക്തമാക്കിയത്

എല്ലിന് കരാർ നിൽകിയതിന്റെ രേഖകളും സഭയിൽ മന്ത്രി ഹാജരാക്കി

എല്ലുമായി കരാർ ഒപ്പിട്ടതെന്ന് മന്ത്രി സ്ഥിരീകരിച്ചു

ആകെ ഒരു ലക്ഷം കോടി രൂപയുടെ കരാറാണ് നിലവിൽ വരുന്നതെന്നും കോൺഗ്രസ് പ്രസിഡന്റ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു

എൽ ഇടപാടിൽ പ്രതിരോധമന്ത്രി വീണ്ടും കളവ് പറയുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ ഉന്നയിച്ച സംശയം അതേപടി അവശേഷിക്കുകയാണെന്നും പ്രതിരോധമന്ത്രി ലോകസഭയിൽ നടത്തിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് അദ്ദേഹം പ്രതികരിച്ചു

ശ്രീരാഹുലിന്റെ ആരോപണങ്ങൾ വാസ്തവരഹിതമാണ്ണിും കച്ചവട താൽപ്പരൃങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

എ മന്ത്രിസഭ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമെന്നും ജെ

യു അധൃക്ഷനും ബിഹാർ മുഖൃമന്ത്രിയുമായ നിതീഷ് കുമാർ പറഞ്ഞു പട്നയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

മഴകാരണം അഞ്ചാം ദിനം കളി ഉപേക്ഷിച്ചതിനാൽ സിഡ്നി ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു

ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതി വിരാട് കോഹ്ലിക്ക് സ്വന്തമായി

പരമ്പരയിൽ ഇന്ത്യയുടെ ബാറ്റിംഗും ബൌളിംഗും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു

ദി ആക്സിഡന്റൽ പ്രൈംമിനിസ്റ്റർ എന്ന് ചിത്രത്തിന് എതിരെ ഡൽഹിയിലെ ഫാഷൻ ഡിസൈനറായ പൂജാ മഹാജനാണ് ഹർജി നൽകിയത് പരാതിക്കാരിക്ക് വിഷയത്തിൽ പ്രത്യേക താൽപരര്യം വേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് വിഭു ഭബ്രു ആണ് ഹർജി തള്ളിയത്

രാജ്യത്ത് പണത്തിന്റെ ആവശൃകത വർദ്ധിക്കുകയാണ് ഇക്കാര്യം റിസർവ് ബാങ്ക് സസൂക്ഷ്മം നിരീക്ഷിച്ച് നടപടിയെടുത്തു വരികയാണെന്നും ശ്രീ

ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഗവർണർ ബാങ്കിംഗ് ഇതരസ്ഥാപനങ്ങളുമായി നാളെ ചർച്ച നടത്തും

വെബ്ബ്സൈറ്റുകളിൽ അപകീർത്തിപരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഐ

നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചിരുന്നു

അലഹാബാദ് നഗരത്തിന്റെ പേര് അടുത്തിടെയാണ് പ്രയാഗ്രാജ് എന്നാക്കി മാറ്റിയത്

കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി ഉത്തർപ്രദേശ് ഗവൺമെന്റ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് കുംഭമേളയിൽ ആദ്യമായി പങ്കെടുക്കുന്നവർക്കായി അക്ഷയവാടിയിലും സരസ്ഥതി തീർത്ഥത്തിലും സ്നാനം ചെയ്യാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് കുംഭമേളയിലൂടെ ഹിന്ദു സംസ്കാരത്തിന്റെ പരിഛേദം ബോധ്യപ്പെടുത്തണം സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് യു

കുംഭൂമേള് നട്ക്കുന്ന പ്രദേശം ശുചിയാക്കുന്നതിനും ഗവൺമെന്റെ മുൻഗണന നൽകും ആളുകൾ ഒഴുകിയെത്തുന്നതിനാർ മേഖലയിലാകെ കനത്ത സുരക്ഷാസംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്

എസ് ഒഴികെയുള്ള പ്രമുഖ ട്രേഡ് യൂണിയ നുകൾ പണിമുടക്കിൽ പങ്കെടുക്കും

പത്രം പാൽ വിതരണം ആശുപത്രികൾ വിനോദസഞ്ചാര മേഖല എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താൽ പണിമുടക്ക് എന്നിവയ്ക്ക് ഏഴ് ദിവസം മുമ്പേ നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോട്ടതി ഉത്തരവിട്ടു അല്ലാത്തപക്ഷം നിയമലംഘനത്തിന് പുറമേ കർശന ബാധൃതകൾ ചുമത്തും തുട്ടർച്ചയ്കായ സമരങ്ങൾ മൌലികാവകാശത്തെ ബാധിക്കുന്നതായി നിരീക്ഷിച്ച കോടതി ഹർത്താലുകളിൽ ഉണ്ട്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അത് പ്രഖ്യാപിക്കുന്നവരിൽ നിന്ന് ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു